ഉത്സവാഘോഷവേളയിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രാദേശിക ഉത്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് സുരക്ഷാമാർഗ്ഗങ്ങൾ പാലിച്ച് രാജ്യത്ത് മഹാനവമി ആഘോഷം നാളെ വിജയദശമി

സ്ഥിരീകരിച്ചു

ക്രിക്കറ്റിൽ ബാംഗ്ലൂരിനെതിരെ ചെന്നൈയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം രണ്ടാം മത്സരത്തിന്റെ ടോസ് നേടിയ മുംബൈ രാജസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

ഇന്ത്യൻ ഉത്പന്നങ്ങൾ ്ലോകശ്രദ്ധ നേടുകയാണ്

രാജ്യത്തെ ആയോധന കലകൾ യുവാക്കൾ പഠിക്കണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു

ആഘോഷവേളകളിൽ രാജ്യത്തിനായി സേവിക്കുന്ന ധീരസൈനികരെ ഓർമ്മിക്കണം അവരോടുള്ള ബഹുമാനസൂചകമായി വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു

എന്നാൽ ഇന്ത്യയുടെ ഒരിഞ്ചു ഭൂമി പോലും കൈയടക്കാൻ ആരേയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ ആയുധപൂജ നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന

പ്രധാനമന്ത്രി തുടർച്ചയായി പദ്ധതീക്കൾ നിരീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

തിന്മയുടെ മേൽ നന്മയുടെ വിജയം അടയാളപ്പെടുത്തി കൊണ്ട് രാവണന്റെ മേൽ ശ്രീരാമന്റെ വിജയം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ദസറ ്അഥവ വിജയദശമി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് വിജയദശമി ആശംസകൾ നേർന്നു രാജ്യത്തെ സാംസ്കാരിക ഐക്യം ശക്തിപ്പെടുത്തുകയും നന്മയുടെ പാത പിന്തുടർന്ന് ഒത്തൊരുമയോടെ ് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആഘോഷമാണ് വിജയദശമി എന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ആഘോഷ വേളയിൽ കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉപരാഷ്ട്രപതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു തിന്മയുടെ മേൽ നന്മ വരിച്ച വിജയം എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും വിദ്യാര്യിട്ടം സംഘടിപ്പിക്കുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് സർക്കാർ നിർദേശിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശൈലജ അറിയിച്ചു

എൽ ക്രിക്കറ്റ് ഇന്നത്തെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ചെന്നൈ സൂപ്പർ കിംഗ്സിനു എട്ട് വിക്കറ്റ് വിജയം

രണ്ടാം മത്സരത്തിൽ ടോസ് ്നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

ഡി എ മഹാസഖ്യം എന്നീ പാർട്ടികളുടെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ

ഡി എയിൽ മുതിർന്ന ബി ജെ പി നേതാക്കളും ചലച്ചിത്ര താരങ്ങളും പ്രചാരണത്തിൽ സജീവമാണ് ഷാഹ്പുറിലെയും ബ്രഹ്മപുറിലെയും റാലികളെ കേന്ദ്രമന്ത്രി അശ്ചിനികുമാർ ചൌബേ അഭിസംബോധന ചെയ്തു അമർപൂരിൽ ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ രഘുബർ ദാസ് സംബന്ധിച്ചു

ആറു പേരടങ്ങുന്ന ഒരു വാഹനത്തിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയാണ് ഈ സംരംഭത്തിലൂടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശം അന്വർത്ഥമാക്കുന്ന നടപടി രാജ്യത്തെ ആഭ്യന്തര ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു

ഘോഷയാത്രയോ കൂട്ടം കൂടലോ ഒത്തുച്ചേര്ലോ ഇല്ല